വസന്തം അരുണാചൽ പ്രദേശിൽ നാലായിരം കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചും അസം ത്രിപുര സംസ്ഥാനങ്ങളിലും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടിക്ക്മാകും

ണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇന്ത്യൻ താരങ്ങളായ ശശികുമാർ മുകുന്ദും പ്രജിനേഷ് ഗുണേശ്വരനും സെമിയിൽ

വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം യാഥാർത്ഥ്യമായാൽ മാത്രമേ നവ ഇന്തൃ പൂർണ്ണമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ലിൻസ വോയിസ് അരുണാചൽപ്രദേശിന്റെ വികസനത്തിന് നിരവധി പദ്ധതികളാണ് കേന്ദ്രം ആവിഷ്ക്കരിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മുൻകാല ഗവൺമെന്റുകൾ അരുണാചൽ പ്രദേശിന്റെ ദീർഘകാല വികസന ആവശ്യങ്ങളെ അവഗണിച്ചതായി അദ്ദേഹം ആരോപിച്ചു

വടക്കുകിഴക്കൻ മേഖലയിലെ ദൂരദർശന്റെ രണ്ടാമത്തെ ചാനലാണിത് അരുണാചൽ പ്രദേശിന്റെ സൌന്ദരൃം രാജ്യത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ചാനലിലൂടെ കഴിയുമെന്ന് ശ്രീ

തുടർന്ന് അദ്ദേഹം ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിന് ശിലാസ്ഥാപനം നിർവ്വഹിച്ചു വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള രാജ്യത്തെ തന്നെ മൂന്നാമത്തെ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണിത് തുടർന്ന് ഹൊല്ലോങ്ങിൽ അദ്ദേഹം ഗ്രീൻ ഫീൽഡ് വിമാനത്താവളത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിച്ചു അരുണാചൽ പ്രദേശിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിമാനത്താവളം മുതൽക്കൂട്ടാകും എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം ഉറപ്പാക്കുന്ന തവാങ് ഭൂഗ്ലൂഭ റെയിൽപാതയ്ക്കും പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നിർവ്വഹിച്ചു

റ്റോഡ്ട്കൾക്കു പുറമെ അരുണാചൽ പ്രദേശിൽ റെയിൽ പാതിക്കും വർദ്ധിപ്പിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു

അസമിൽ ബ്രഹ്മപുത്ര നദിക്കു കുറുകെയുള്ള ആറുവരി പാതയ്ക്ക് തറക്കല്ലിടും

ആർ എൽ ബയോ റിഫൈനറി ബറൌനി ഗുവാഹത്തി ഗ്യാസ് പൈപ്പ് ലൈൻ വടക്കു കിഴക്കൻ വാതകഗ്രിഡ് പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് ത്രിപുര തലസ്ഥാനമായ അഗർത്തലയിൽ എത്തുന്ന പ്രധാനമന്ത്രി ഗർജി ബെലോണിയ റെയിൽവേപ്പാത രാഷ്ട്രത്തിന് സമർപ്പിക്കും ത്രിപുരയെ തെക്ക് കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റെയിൽവേ പാതയാണിത്

ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്

അന്താരാഷ്ട്ര ഉടമ്പടികളും മര്യാദകളും പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു

ഒരുക്കങ്ങളും കുംഭമേളയോടനുബന്ധിച്ച മൂന്നാമത്തെയും അവസാനത്തെയും രാജസ്നാനമാണ് നാളത്തേത് ബസന്ത് പഞ്ചമിയ്ക്കുശേഷം മാഹി പൂർണ്ണിമ ദിനത്തിലാണ് ഇനി അവശേഷിക്കുന്ന രണ്ട് സ്നാനങ്ങൾ

ഇന്ത്യയുടെ കിഴ ക്കൻ മേഖലയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ കാർഷിക മേളയാണിത് ഗവർണർ ലാൽജി ടണ്ടനും കേന്ദ്ര കൃഷി മന്ത്രി രാധാമോഹൻ സിംഗും സംയുക്തമായി മേള ഉദ്ഘാടനം ചെയ്യും

വോട്ടർ വെരിഫിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ പ്രോഗ്രാം വി വി ഐ

ഇതിനായി രാജ്യത്തെ എല്ലാ ജില്ലകളിലും കേന്ദ്രങ്ങൾ തുടങ്ങും

നിരവധിപേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്

പേരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ് ചികിത്സയിൽ കഴിയുന്നവർക്ക് എല്ലാ സൌകര്യങ്ങളും ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്രസിംഗ് റാവത്ത് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി

തിരുവനന്തപുരം തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിൽ ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ടെന്നീസ് സെമി ഫൈനലിൽ ഇന്ത്യൻ താരങ്ങളായ പ്രജ്നേഷ് ഗുണേശ്വരനും ശശികുമാർ മുകുസ്തു്രാൻ ഇന്നിറങ്ങും

ഇന്തോനേഷ്യൻ ചൈനീസ് സഖ്യത്തെയാണ് സെമിയിൽ ഇവർ നേരിടുക

നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയും ഭാഗീഗമായി റദ്ദാക്കുകയും ചെയ്തു കിഴക്കൻ ജില്ലകളിൽ പ്രക്ഷോഭത്തെ ൃതുടർന്ന് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്

ഇവരിൽ മൂന്ന് പേർ ് പോലീസ് ഉദ്യോഗസ്ഥരും രണ്ട് പേർ അഗ്നിശമന ഉദ്യോഗസ്ഥരുമാണ് ശ്രീനഗർ ജമ്മു ദേശീയ പാതയിൽ പോലീസ് പോസ്റ്റ് പ്രവർത്തിച്ചിരുന്ന മന്ദിരത്തിലാണ് കനത്ത മഞ്ഞ്വീഴ്ചയുണ്ടായത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തി ഒരാളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല സംയുക്ത സേന ഇയാളെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുന്നു